നാശനഷ്ടം കണ്ണൂരിലും ഇടുക്കിയിലും ഉരുൾപൊട്ടൽ

ജില്ലാ പഞ്ചായത്തിൽ കൊല്ലത്തിന് ഒന്നാം സ്ഥാനം

മുതിർന്ന നേതാവ് വി എം സുധീരൻ

ഉദ്ഘാടനം നാളെ കേന്ദ്ര ആയുഷ് മന്ത്രി ശ്രീപദ് യശോനായിക് നിർവ്വഹിക്കും റഷ്യയിലേക്ക് കൺതുറന്ന് ലോകം

ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്

ശക്തമായ മഴയിൽ ഇടുക്കി വയനാട് ജില്ലകളിലെ ചില മേഖലകൾ ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ്

അറബിക്കടലിൽ കേരളതീരത്തിന് സമാനമായി ന്യൂനമർദ്ദപാത്തി നിലകൊള്ളുന്നതാണ് മഴ ശക്തമാകാൻ കാരണം മലപ്പുറം പൊന്നാനിയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് ഒരാളെ കാണാതായി കോതമംഗലത്ത് കലുങ്ക് തകർന്ന് ഇടമലയാർ ഭൂതത്താൻ കെട്ട് ദ്യോഡിൽ ഗതാഗതം മുടങ്ങി കനത്ത മഴ തുടരുന്നതിനാൽ കോഴിക്കോട്ട് ് കൂടരഞ്ഞി കാരശേരി പഞ്ചായത്തിൽ സ്കൂളുകൾക്ക് നൽകി

കോട്ടയം ജില്ലയിൽ അയ്മനം ആർപ്പൂക്കര കുമരകം തിരുവാർപ്പ് പഞ്ചായത്തുകളിൽ ദൂരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു ചങ്ങനാശ്ശേരിയിലും പരിസരത്തും പലയിടത്തും വെളളക്കെട്ടുകൾ രൂപപ്പെട്ടു

കർണാടക അതിർത്തിയിൽ പുളിങ്ങോം കോഴിച്ചാലിൽ ഉരുൾപ്പൊട്ടി നാലു കുടുംബങ്ങളെ മാറ്റിപാർപ്പിച്ചു ഉളിയ്ക്കൽ തൊട്ടിൽപ്പാലത്ത് പത്തു കുടുംബങ്ങളെ മാറ്റിപാർപ്പിച്ചു

പഴശ്ശി ജലസംഭരണിയിൽ ജലനിരപ്പ് ഉയർന്നു വളപട്ടണംപുഴ കരകവിഞ്ഞു

വെള്ളം കടലിലേക്ക് ഒഴുക്കിവിട്ടു കുട്ടനാടിൽ രണ്ട് പാടശേഖരങ്ങളിൽ മടവീണു

എസ് ആർ ടി സി സർവീസ് മുടങ്ങി അഞ്ഞൂറോളം ഏക്കർ നെൽകൃഷി നശിച്ചു വയനാട് തരിയോട് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു

കൊടുങ്ങല്ലൂരിൽ കടൽക്ഷോഭമുണ്ടായ പ്രദേശങ്ങൾ കളക്ടർ ടി

വെണ്ണിക്കുളം കോയിപ്പും തോട്ടപ്പുഴശ്ശേരിയിൽ തിരുമൂലപുരം എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത്

പത്തനംതിട്ട കളക്റ്ററേറ്റിലും താലൂക്ക് ഓഫീസുകളിലും മണിക്കൂറും കൺട്രോൾ റൂമുകളും പ്രവർത്തിക്കുന്നുണ്ട്

ജില്ലാതല ഗ്രാമപഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾക്ക് യഥാക്രമം അഞ്ച് ലക്ഷം മൂന്ന് ലക്ഷം രണ്ട് ലക്ഷം എന്നിങ്ങനെയാണ് പ്രത്യേകം സജ്ജമാക്കിയ സോഫ്ട് വെയർ സംവിധാനത്തിലൂടെയാണ് ജേതാക്കളെ തിരഞ്ഞെടുത്തതെന്ന് ആരോഗ്യമന്ത്രി കെ

ബിഎസ്എഫ് സേന തിരിച്ചടിച്ചതിനെ തുടർന്ന് പുലർച്ച രണ്ട് മണിവരെ വെടിവയ്പ് തുടർന്നു

ഇന്ന് പുലർച്ചെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നടത്തിയ പരിശോധനയിലാണ് അഫ്ഗാൻ പൌരനായ മുഹമ്മദ് സിദ്ദിഖി അറസ്റ്റിലായത്

യന്ത്രത്തകരാർ മൂലം വിമാനം ഇന്നലെ മുടങ്ങിയിരുന്നു

സംസ്ഥാന നേതൃത്വം മതേതര മുന്നേറ്റം തടയുന്ന നടപടിയാണ് ക്രൈക്കൊണ്ടത് നഷ്ടപ്പെട്ട വിശ്വാസം നേതൃത്വം വീണ്ടെടുക്കണം

പരസ്യപ്രസ്താവന വിലക്കുന്നത് പ്രശ്നങ്ങൾക്ക് ഒറ്റമൂലിയല്ലെന്നും സുധീരൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

കരാർ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളുടെ പരിശോധന ഇന്ന് തുടങ്ങി വിശദാംശങ്ങളുമായി തിരുവനന്തപുര ആർടിഒ മുരളീകൃഷ്ണൻ

ജില്ലയിലെ മലയോര മേഖലകളിൽ പനിബാധിതരുടെ എണ്ണം കൂടിവരുന്നതായി കാണപ്പെട്ടു

എം കോൺഫറൻസ് ഹാളിൽ ആരോഗ്യമന്ത്രി കെ

രാജ്യത്ത് ആദ്യമായാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലുള്ള ഗ്രാമം ഈ പദവിയിലേയ്ക്ക് എത്തുന്നത് യോഗാ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും നാളെ വൈകിട്ട് മൂന്നിന് എ ബി വിലാസം ഹയർ സെക്കണ്ടറി സ്കൂൾ ഗ്രൌണ്ടിൽ കേന്ദ്ര ആയുഷ് മന്ത്രി ശ്രീപദ് യശോനായിക് ഉദ്ഘാടനം ചെയ്യും

കേന്ദ്ര ആയുഷ് മന്ത്രാലയവും കേരള ടൂറിസം മന്ത്രാലയവും സംയുക്തമായാണ് പരിപാടി നടത്തുന്നത് യോഗ ടൂർ അംഗങ്ങൾ കേരളത്തിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കും

കാൽപ്പന്തിന്റെ തീവ്രവേഗങ്ങൾക്കൊപ്പം സഞ്ചരിക്കും